ലോക നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീലങ്കൻ പ്രസിഡന്റ് മൈത്രിപാല സിരിസേനയുമായി ചർച്ച നടത്തി

രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉഷ്ണതരംഗം തുടരുന്നു

ഫ്രഞ്ച് ഓപ്പണിൽ പുരുഷ ഡബിൾിൽ മൂന്നു ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങും

വിവിധ ലോകനേതാക്കളുമായി ്ക്ടിക്കാഴ്ച നടത്തുന്നതിൽ ആദ്യത്തേതാണിത് ഇരു അജ്യങ്ങൾക്കും താല്പര്യമുള്ള വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തു

രണ്ടാമതും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷമുള്ള ശ്രീ നരേന്ദ്രമോദിയുടെ ആദ്യ പരിപാടിയായിരുന്നു ഇത് ഷാംങ്ഹായ് സഹകരണ സംഘടനയുടെ അധ്യക്ഷനെന്ന നിലയിൽ ആണ് കിർഗിസ് പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തത് ശ്രീ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച ജീൻബികോവ് സംഘടനയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കിർഗിസ്ഥാനിൽ എത്തണമെന്ന് അഭ്യർത്ഥിച്ചു

ഇന്ത്യയും കിർഗിസ്ഥാനും തമ്മിൽ ഊഷ്മള ബന്ധമാണുള്ളതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

കിർഗിസ്ഥാനിലേക്കുള ക്ഷണത്തിന് ആദ്ദേഹം നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്തു ഇന്ന് ബംഗ്ലാദേശ് പ്രസിഡന്റ് മൊഹമ്മദ് അബ്ദുള ഹമീദ് മൌറീഷ്യസ് പ്രധാനമന്ത്രി പ്രവിന്ദ് കുമാർ ജൂഗുനാഥ് എന്നിവരുമായി ശ്രീ നരേന്ദ്രമോദി വെവ്വേറെ ചർച്ച നട്ടിര്തും നേപ്പാൾ പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലി ഭൂട്ടാൻ പ്രെയ്ാനമന്ത്രി ലോതേയ് ഷെറിംഗ് എന്നിവരുമായും പ്രധാനമന്ത്രി ചെർച്ച് നടത്തും

പാർലമെന്റംഗങ്ങൾ എന്ന നിലയിലുള്ള പ്രാഗത്ഭ്യം തെളിയിച്ചവരും തങ്ങളുടേതായ പ്രവർത്തന മണ്ഡലങ്ങളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവച്ചവരുമാണ് മന്ത്രിസഭ അംഗങ്ങളെന്ന് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു

ശ്രീലിങ്കൻ തമിഴ് വംശജരുടെ പ്രതിനിധി എന്ന നിലയിൽ മന്ത്രി പ്രമർനോ ഗണേശൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ചു

പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്ന തീയതി യോഗത്തിൽ തീരുമാനിക്കും ഈ സമ്മേളനത്തിൽ പുതിയ ലോക്സഭ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും നടക്കും വരും ദിവസങ്ങളിൽ ക്യാബിനറ്റ് കമ്മിറ്റികൾ വിവിധ സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തീരുമാനമെടുക്കും

രാജ്യത്തിന്റെ സമുദ്ര സുരക്ഷ ശക്തമാക്കുന്നതിനാണ് സ്രധാന പരിഗണനയെന്ന് നാവികസേനാ മേധാവി പറഞ്ഞു അഡ്മിറൽ സുനിൽ ലാംബ വിരമിച്ച ഒഴിവിലാണ് അഡ്മിറൽ കരംബീർ സിംഗിന്റെ നിയമനം

സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ അടുത്ത രണ്ട് മൂന്ന് ദിവസങ്ങളിൽ കടുത്ത ചൂടുണ്ടുക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി

മഹാരാഷ്ട്രയിലെ വിദർഭ മേഖല ത്ധാർഖണ്ഡ് ഉത്തർപ്രദേശ് ഒഡീഷ എന്നിവിടങ്ങളിൽ ഉഷ്ണതരംഗം തുടരുകയാണ്

പുകയിലയും ശ്ചാസകോശ ആരോഗ്യവും എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ ആശയം ദിനാചരണത്തിന്റെ ഭാഗമായി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം ന്യൂഡൽഹിയിൽ പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു

പുകയില ഉപഭോഗം കുറച്ചുകൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് നടപ്പാക്കിവരികയാണെന്ന് ആരോഗൃ സെക്രട്ടറി പ്രീതി സുദൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവ്വഹിക്കവെ പറഞ്ഞു

ദിവിജ് ശരൺ ലിയാണ്ടർ പയസ് രോഹൺ ബൊപ്പണ്ണ എന്നിവർ ഉൾപ്പെട്ട സഖ്യത്തിന്റെ മത്സരങ്ങൾ ഇന്ന് നടക്കും മിക്സഡ് ഡബിൾസിൽ ഇന്ത്യയുടെ പങ്കാളിത്തം ഇന്നലെ അവസാനിച്ചു ദിവിജ് ശരണും ഷൂകോ അവോയാമയും ചേർന്ന സഖ്യം മെക്സിക്കൺ ഉക്രൈൻ ജോഡികളായ സാന്റിയാഗോ ഗോൺസാലസ് ല്യൂഡ് മൈല കിച്ചനോക്ക് സഖൃത്തോട് ഇന്നലെ പരാജയപ്പെട്ടു

കൂടുതൽ വിവരങ്ങളുമായി സോഫിയ

വൃവസായം ബാങ്കിംഗ് സാമ്പത്തിക സേവന മേഖല എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സാമ്പത്തിക വിദഗ്ധരിൽ നിന്നാണ് സർവ്വെയ്ക്കായി വിവരങ്ങൾ തേടിയത് പണപ്പെരുപ്പം മിതമായ തോതിലായിരിക്കും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

അന്വേഷണം പൂർത്തിയാക്കാൻ കൂടുതൽ സമയം വേണമെന്ന സി ബി ഐ യുടെ ആവശ്യുക് ജസ്റ്റിസ് മുക്താ ഗുപ്ത അംഗീകരിക്കുകയായിരുന്നു ഡി എസ് പി ദേവേന്ദർ കുമാർ ഇടനിലക്കാരൻ മനോജ് ്പ്രസാദ് എന്നിവരും കേസിൽ അന്വേഷണം നേരിടുന്നുണ്ട്

ഇവരെ ചോദ്യം ചെയ്ത് വരികയാണ്

നരേന്ദ്രമോദിയും ശേഷം കിരീടാവകാശിയും ഹസ്തദാനം ചെയ്യുന്ന ദൃശ്യങ്ങൾ അബുദാബിയിൽ പ്രദർശിപ്പിച്ചു

ഇ എണ്ണക്കമ്പനി പ്രവർത്തിക്കുന്ന കൂറ്റൻ അഡ്ീനോക് കെട്ടിട സമുച്ചയത്തിലാണ് ഇരു നേതാക്കളും ഹസ്തദ്ദീനും ചെയ്യുന്ന ദൃശ്യങ്ങൾ ദേശീയ പതാകയോടൊപ്പം പ്രദർശിപ്പിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ സുവർണ കാലഘട്ടമാണിതെന്ന് യു

അഫ്ഗാൻ ദേശീയ സുരക്ഷാ സേനയുടെ ഓഫീസിന് സമീപമാണ് സ്ഫോടനമുണ്ടായത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല

ഭീകരർക്ക് സാമ്പത്തിക സഹായം നൽകിയ കേസിലാണ് ആസ്റ്റ് ഭീകരരെ നിയന്ത്രിക്കണമെന്നുള്ള അന്താരാഷ്ട്ര സമൂഹിത്തിന്റെ സമ്മർദ്ദ ഫലമായാണ് പഞ്ചാബ് പ്രവിശ്യയിൽ നിന്ന് ഇവരെ പിടികൂടിയത് പിടികൂടിയവരിൽ നിന്ന് ദശലക്ഷക്കണക്കിന് രൂപ കണ്ടെടുത്തായും റിപ്പോർട്ടുണ്ട്